ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തു ത ഇന്ത്യയെ യു എൻ രക്ഷാസമിതിയിൽ താൽകാലിക അംഗമായി തെരഞ്ഞെടുത്തു

ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രതിരോധിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് യഥാസമയം തീരുമാനം എടുത്തതിനാൽ ഒരു പരിധി വരെ കോവിഡ് മഹാമാരി തടയാൻ കഴിഞ്ഞു കൊറോണ വൈറസിനെതിരായ പോരാട്ടം മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയ രണ്ടാം ദിവസത്തെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

രമേ വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികളിൽ മുൻകരുതലിന്റെ ഭാഗമായി കോവിഡ് പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകുമെന്നും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് തടയാൻ പരമാവധി ജാഗ്രത പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

രമേ കോവിഡ് പരിശോധനയുടെ പേരിൽ പ്രവാസികളെ വിലക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തും ദരദ പ്രവാസികളെ മടക്കിക്കൊണ്ടു വരുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെക്രട്ടറിയേറ്റിന് മുന്നിൽ നാളെ ഉപവസിക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഉപവാസ സമരം രുഭ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തും പ്രവാസികളും മനുഷ്യരാണ് പ്രവാസികളോടുള്ള ക്രൂരത ഗവൺമെന്റ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്

മലപ്പുറം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഒരാൾക്ക് വീതം സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

ഇതിൽ സമ്പർക്കം വഴി കേസുകളില്ല കൊല്ലത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നീരജ്ലാൽ

രുദ കോഴിക്കോട് ജില്ലയിൽ കുവൈത്തിൽ നിന്നും വന്ന നാലു പേർക്കും സൌദിയിൽ നിന്നും ദുബായിൽ നിന്നും വന്ന ഓരോരുത്തർക്കുമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

രുമ എറണാകുളം ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച അഞ്ചു പേരിൽ രണ്ടുപേർ വിദേശത്തു നിന്നും വന്ന തെലുങ്കാന തമിഴ്നാട് സ്വദേശികളാണ്

രണ്ടു പേർ രോഗമുക്തി നേടി രുമ വയനാട് ജില്ലയിൽ നീലഗിരി മാനന്തവാടി സ്വദേശികൾക്കാണ് ഇന്നലെ കോവിഡ് പോസിറ്റീവായത് ജില്ലയിൽ ഒരാൾ കൂടി രോഗമുക്തനായി രുമ സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ണൂർ കോർപറേഷനിലെ കാനത്തൂർ താളിക്കാവ് പയ്യാമ്പലം പ്രദേശങ്ങൾ കണ്ടെയിൻമെന്റ് സോണുകളാക്കി ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരുമെന്ന് കലക്ടർ അറിയിച്ചു

മയ്യിൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കണ്ടെയിൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി രുമ കോഴിക്കോട് നഗരത്തിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് പരിശോധന കർശനമാക്കുമെന്നും സുരക്ഷാ പാലിക്കാതെ പ്രവർത്തിക്കുന്ന മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾക്കെതിരേയും വ്യക്തികൾക്കെതിരേയും കർശന നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് മേധാവി എ

ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കാതെ കടകളിലും മാർക്കറ്റുകളിലും എത്തിച്ചേരുന്നതും കടകളിൽ ബ്രെയ്ക്ക് ദ ചെയിൻ ക്യാംപിയന്റെ ഭാഗമായ സാനിറ്റൈസറും ഹാന്റ് വാഷും ഉപയോഗിക്കാത്തതും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കുന്നത്

ശക്തമായ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ആദ്യ പരിശോധനാഫലം നെഗറ്റീവായിരുന്നു ദേഴ തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻവർധന

ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

ആദ്യഘട്ടത്തിൽ മുതൽ ഏഴുവരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഒന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മുഴുവൻ ഭാഷാ വിഷയങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും വൈറ്റ് ബോർഡ് പഠനം ഒരുക്കും വാട്സപ് കൂട്ടായ്മ രൂപീകരിച്ചായിരിക്കും പാഠഭാഗങ്ങൾ ഭിന്നശേഷി കുട്ടികളിലെത്തിക്കുക രുമ ലഡാക്കിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായി ടെലഫോണിൽ ചർച്ച നടത്തി നിലവിലെ അന്തരീക്ഷം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനും ഈ മാസം ആറിന് ഇരു രാജ്യങ്ങളിലേയും മുതിർന്ന കമാൻഡർമാർ തമ്മിൽ ഉണ്ടാക്കിയ ധാരണ ആത്മാർത്ഥമായി നടപ്പാക്കാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ന്യൂഡൽഹിയിൽ അറിയിച്ചു

എൻ രക്ഷാസമിതിയിൽ താൽകാലിക അംഗമായി തെരഞ്ഞെടുത്തു

രണ്ടു വർഷമാണ് കാലാവധി ദരദ കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാതയിൽ ദേവികുളം ഗ്യാപ്പിൽ വീണ്ടും വൻ മലയിടിച്ചിൽ

മുമ്പ് മലയിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ ഉൾപ്പെടെ നശിച്ച ഭാഗത്തിനും മലയിൽക്കള്ളൻ ഗുഹയ്ക്ക് ഇടയിലായാണ് മലയിടിച്ചിൽ ഉണ്ടായത്

മലയടിവാരത്തെ റോഡുകളിലൂടെയും ജനങ്ങൾ സഞ്ചരിക്കരുതെന്ന് അധികൃതർ അറിയിച്ചു

രുമ ലോക്ഡൌൺ കാലത്ത് വൈദ്യുതി ഉപയോഗത്തിന് കെ എസ് ഇ ബി നൽകിയ ബില്ലിനെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതേപറ്റി അന്വേഷിച്ച് സംസ്ഥാനഗവൺമെന്റ് തെറ്റുകൾ തിരുത്തണമെന്ന് സി

ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ഉയർന്ന നിരക്കിൽ പണം ഈടാക്കാൻ കെ എസ് ഇ ബി ശ്രമിക്കുന്നു എന്നാണ് പ്രധാന ആക്ഷേപമെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നും തിരുവനന്തപുരത്ത് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു